നടപ്പാക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇനിയും അവസരം

ജെ

ക്ട്രോർ കമ്മിറ്റി ഇന്ന് കോട്ടയത്ത് ചേരും

പദ്മഭൂഷൻ പുര്സ്കാരം ഏറ്റുവാങ്ങി

ഹരിതകേരളം മിഷനും കുടുംബശ്രീയും ചേർന്ന് അയൽക്കൂട്ട ജലസഭകൾ സംഘടിപ്പിക്കും

ഇന്ന് വൈകിട്ട് തുറക്കും കർശന സുരക്ഷ ഒരുക്കി പൊലീസ് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റചട്ടം കർശനമായി നടപ്പിലാക്കുമെന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ ടിക്കാറാം മീണ അറിയിച്ചു

ഈ പരിധി ലംഘിക്കുന്നുണ്ടോയെന്ന് കർശനമായി നിരീക്ഷിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്ത സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് മലപ്പുറം ജില്ലയിലാണ് കുറവ് കയനാട് ജില്ലയിലും വോട്ടർ പട്ടികയിൽ പേരു ചേർക്കാൻ ഇനിയും അവസരമുണ്ട്

ഇന്നു ചേരുന്നത് സ്ക്രീനിങ് കമ്മിറ്റി ചർച്ച മാത്രമാണെന്നും ലിസ്റ്റ് പിന്നീടേ പ്രഖ്യാപിക്കാനാകുവെന്നും മുല്ലപ്പള്ളി പറഞ്ഞു വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ആകും അന്തിമ തീരുമാനമെടുക്കുക അതേസമയം മൽസരിക്കാനില്ലെന്ന് മുതിർന്ന കൂടുതൽ മുതിർന്ന നേതാക്കൾ പ്രതികരിച്ചു

ജെ പി കോർ കമ്മിറ്റി യോഗം ഉച്ചുകഴിഞ്ഞ് കോട്ടയത്ത് ചേരും മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ അടക്കമുള്ളവർ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്

ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പ്രിഗണിച്ചാണ് മോഹൻലാലിന് പത്മഭൂഷൺ നൽകി ആദരിച്ചത് മോഹൻലാലിന് പുറമേ മലയാളി സംഗീതജ്ഞനായ ക്ക് ജി ജയനും പത്മപുരസ്കാരം ഏറ്റുവാങ്ങി

പുരസ്കാര വിതരണ ചടങ്ങിൽ അ ഞ്ചാമനായാണ് ശ്രീ മോഹൻലാൽ രാഷ്ട്രപതിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങിയത് പ്രഭുദേവ ഡോ മാമൻ ചാണ്ടി എന്നിവരും പത്മ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി

കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എസ്

ന്ദികളിൽ നീരൊഴുക്ക് ഗണ്യമായി കുറഞ്ഞു ഒക്ടോബർ മൂതൽ ഡിസംബർ വരെ ലഭിക്കേണ്ട മഴയുടെ അളവിലുണ്ടായു സ്റ്റ്ര്മായ കുറവാണ് ഇതിനു കാരണം കോഴിക്കോട് ജില്ലയിട്ടില് ഉയർന്ന പ്രദേശങ്ങളിൽ ഭൂഗർഭ ജലവിതാനം ഒരു മീറ്റർവരെ താഴ്ന്നതായാണ് റിപ്പോർട്ട് കുംഭ ഭരണി ചെട്ടികുളങ്ങര കുംഭഭരണി ഇന്ന്

ഉച്ചയോടെ കുത്തിയോട്ട സമർപ്പണം പൂർത്തിയാകും

കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ആകാശവാണി പ്രതിനിധി ബിജി വർഗ്ഗീസ്

ശബരിമല തീർഥാടകരും പമ്പാ നദിയുടെ തീരത്ത് താമസിക്കുന്നവരും എബ്ന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ജാഗ്രത പുലർത്തണമെന്ന് പത്തനംതിട്ടിട്ട് ജില്ലാ കളക്ടർ അറിയിച്ചു

കാട്ടാനയെ വനം വകുപ്പിന്റെ കുങ്കിയാനകളുടെ സഹായത്തോടെ മുത്തങ്ങയിലെ ആന കൊട്ടിലിലേക്ക് എത്തിക്കു മെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു

ഐ എം

നേരത്തെ സെക്രട്ടറിയായിരുന്ന പി ജയരാജൻ വടകര മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിനെ തുടർന്നാണ് പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത്

എഫ് കണ്ണൂർ ജില്ലാ തെരഞ്ഞെടുപ്പ് കൺവെൻഷന് നാളെ തുടക്കമാകും നാളെ വൈകുന്നേരം ഠൌൺ സ്കയറിൽ മന്ത്രി ഇ

കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ശിൽപശാല ഇന്നലെ കണ്ണൂരിൽ നടന്നു

ആരിഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ്യ ഇന്ന് ആരംഭിക്കും

ഡി എഫ്

ജെ

സ്ഥാനാർത്ഥികളുട്ട് കാര്യത്തിൽ അന്തിമ തീരുമാനം വന്നിട്ടില്ലെങ്കിലും മുന്നോടിയായുള്ള ഒരുക്കത്തിലാണ് പ്രവർത്തകർ

ബാക്കിയുള്ളവർക്കായി പോലീസ് തെരച്ചിൽ ഊർജ്ജിതമാക്കി

കൂടെയുണ്ടായിരുന്ന സഹപ്രവർത്തകൻ ഒളിവിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചു

വലിയതുറയിലെ ഫ്രണ്ട്സ് ഓഫ് മറൈൻ എന്ന സംഘടനയാണ് കൃഷ്ക്കാര്യം അറിയിച്ചത്